മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നാവിസും ഉപമുഖൃമന്ത്രിയായി എൻ സി

നേതാവ് അജിത് പവാറും സത്യപ്രതിജ്ഞ ചെയ്തു ഗവൺമെന്റ് രൂപീകരിക്കാൻ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടെന്ന് ബി ജെ

ജെ

ക്കൊപ്പം ച്ചേർാനുള്ള അജിത് പവാറിന്റെ തീരുമാനം പാർട്ടി ്വിരുദ്ധ്മെന്ന് എൻ സി

ദുർബല ജനവിഭാഗത്തിന്റെ മുന്നേറ്റത്തിനായി പദ്ധതികളും സംരംഭങ്ങളും വിനിയോഗിക്കാൻ ഗവർണർമാർ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

രാഷ്ട്രപതി ഭരണത്തിന് വിരാമമിട്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ബി ജെ

നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ന് പുലർച്ചെ സത്യപ്രതിജ്ഞ ചെയ്തു

സി

സി

രാജ്ഭവനിൽ നടന്ന് ്ചടങ്ങിൽ ഗവർണർ ഭഗത് സിങ് കോഷിയാരി ഇരുവർക്കും സത്യവാച്ചകം ചൊല്ലിക്കൊടുത്തു

ജനങ്ങളുടെ വ്യക്തമായ പിന്തുണ ബി ജെ പി ശിവസേന സഖ്യത്തിന് ലഭിച്ചിരുന്നെങ്കിലും ശിവസേന പിന്നീട് സഖ്യ ചർച്ചകൾക്കായി മറ്റു പാർട്ടികളെ സമീപിച്ചുവെന്നും ശ്രീ ഫട്നാവിസ് പറഞ്ഞു

ഗവൺമെന്റ് രൂപീകരണം വൈകിയത് മഹാരാഷ്ട്രയിലെ കർഷകർ അടക്കമുള്ള ജനതയെ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് തള്ളിവിട്ടെന്നും ഈ സാഹചര്യത്തിലാണ് ബി ജെ

യുമായി ചേർന്ന് ഗവൺമെന്റ് രൂപീകരിക്കാൻ തീരുമാനിച്ചതെന്നും ഉപമുഖ്യമന്ത്രി അജിത് പവാർ് പറഞ്ഞു മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിക്കും ഉപമുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു മഹാരാഷ്ട്രയുടെ ശോഭനമായ ഭാവിയ്ക്കായി പുതിയ ഗവൺമെന്റിന് പ്രവർത്തിക്കാനാകുമെന്ന് അദ്ദേഹം ടൂറ്റ് ചെയ്തു കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ നിതിൻ ഗഡ്കരി പ്രകാശ് ജാവദേക്കർ എന്നിവരും നേതാക്കൾക്ക് ആശംസകൾ നേർന്നു അതേസമയം ബി ജെ

ക്കൊപ്പം രൂപീകരിക്കാനുള്ള അജിത്പവാറിന്റെ തീരുമാനം വ്യക്തിപരമാണെന്നും പാർട്ടി തീരുമാനമല്ലെന്നും എൻ

മുംബൈയിൽ ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറക്കൊപ്പമുള്ള വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് അജിത് പവാറിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ സത്യസന്ധമായാണ് ശിവസേന പ്രവർത്തിച്ചതെന്ന് ശ്രീ

അതേസമയം മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് ഇന്ന് എന്നാണ് കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേൽ പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ദേവേന്ദ്ര ഫഡ്നാവിസ് നയിക്കുന്ന ഗവൺമെന്റ് രൂപീകരിക്കാൻ ബി ജെ പി ക്ക് ഭൂരിപക്ഷ പിന്തുണയുണ്ടെന്ന് മുതിർന്ന പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ രവിശങ്കർ പ്രസാദ് ന്യൂഡൽഹിയിൽ പറ്റഞ്ഞു അധികാരത്തിന് വേണ്ടിയാണ് ശിവസേനയുമായി ചേരാൻ കോൺഗ്രസും എൻ

തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുടനീളം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവന്ദ്ര ഫഡ്നാവിസിന്റെ പേരാണ് ഉയർന്നു വന്നതെന്ന് ശ്രീ രവിശങ്കർ പ്രസാദ് പറഞ്ഞു

എ മാരുടെ പിന്തുണ ഉണ്ടെന്നുള്ള അജിത് പവാറിന്റെ വാദം പരിശോധിക്കാൻ ഗവർണർ യാതൊരു ശ്രമവും നടത്തിയില്ലെന്നും കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജെവാല ആരോപിച്ചു

ഗവൺമെന്റ് രൂപീകരണം ജനവിധി മാനിക്കാതെയുള്ളതാണെന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാവ് സഞ്ജയ് സിംഗ് പറഞ്ഞു

എസ്

സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഇടത് തീവ്രവാദ വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലാണ് കമ്മീഷൻ പ്രത്യേക പൊലീസ് നിരീക്ഷകനെ നിയോഗിച്ചത്

അഞ്ച് ഘട്ടങ്ങളായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനായി വിവിധ പാർട്ടികളുടെ ദേശീയ നേതാക്കളടക്കമുള്ളവർ സംസ്ഥാനത്ത് എത്തി തുടങ്ങി

എസ് പ്രവർത്തകൻ നൽകിയ അപകീർത്തി കേസ് തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്നിവർ സമർപ്പിച്ച അപേക്ഷ ബോംബെ ഹൈക്കോടതി നിരസിച്ചു ഇരുവരും കേസിൽ വിചാരണ നേരിടേണ്ടി വരും മാധ്യമ പ്രവർത്തകയായ ഗൌരി ലങ്കേഷിന്റെ മരണത്തിൽ ആർ

എസ് പ്രവർത്തകർ അപകീർത്തി കേസ് നൽകിയത്

രാഹുൽ ഗാന്ധിയുടെ അപകീർത്തികരമായ പരാമർശത്തിനെതിരെ കേസ് ഫയൽ ചെയ്യാമെന്നും പൊലീസിന്റെ ഭാഗത്ത് നിന്നും യാതൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു

മന്ത്രിമാരായ ഇ

വ്യവസായം ടൂറിസം വിദ്യാഭ്യാസം ഫിഷറീസ് മേഖലകളിലെ സാമ്പത്തിക സാങ്കേതിക വിജ്ഞാന സഹകരണമാണ് ലക്ഷ്യം

ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമ്പന്ദ്രൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് തുടങ്ങിയവരാണ് സംഘത്തിലുള്ള മറ്റുള്ളവർ

ഇത്തരം സംഭവം കേരളത്തിലെ സ്കൂളുകളിൽ ഇനി ആവർത്തിക്കാതിരിക്കാൻ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും നിർദേശം നൽകിയിട്ടുന്നെും അദ്ദേഹം പറഞ്ഞു മരിച്ച ഷഹ്ലയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

രാഷ്ട്രപതി ഭവനിൽ ഗവർണർമാരുടെ അമ്പതാമത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് ഗവർണർമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രാമുഖ്യം നൽകണമെന്നും ശ്രീ

കൂടുതൽ വിവരങ്ങളുമായി വിനോദ്

ഗവർണർമാർക്ക് തങ്ങളുടെ കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും പ്രങ്കുവയ്ക്കുന്നതിനുള്ള അവസരമാണ് ഇത്തരം വേദികളെന്നും ഓര്രേക് സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ അന്താരാഷ്ട്ര മാതൃകകൾ അവലംബിക്കാനും സമ്മേളനങ്ങൾ വഴിയൊരുക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്രഭരണ പ്രദേശങ്ങൾ വികസനത്തിന്റെ മാതൃകകളായി വളരാനാകുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

പ്രതിരോധ സേനയിൽ നിന്ന് വിരമിച്ചവർക്ക് എളുപ്പത്തിലും കാലതാമസമില്ലാതെയും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ ഗവൺമെന്റ് സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് പെൻഷൻ സംബന്ധമായ പ്രശ്നപരിഹാരത്തിനായി കോൾസെന്റർ ആരംഭിച്ചിട്ടുള്ളതായും കേന്ദ്രമന്ത്രി അറിയിച്ചു

ഗുരുതരമായി പരിക്കേറ്റ ആറ് പേരെ ജയ്പൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്

ആകാശവാണിയുടേയും ദൂരദർശന്റേയും എല്ലാ നിലയങ്ങളിലും ് പരിപാടി പ്രക്ഷേപണം ചെയ്യും